കൊച്ചിയിലും തൃശൂരും പ്രധാനമന്ത്രി ചട ങ്ങുകളിൽ പങ്കെടുക്കും ആകാശവാണിയിലെ മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ചിന്തകൾ പങ്കുവെയ്ക്കും വിശ്വാസത്തെയും ആചാരത്തെയും മറയാക്കി സ്ഥാപിത താൽപ ര്യക്കാർ ഭരണഘടന അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ

സംസ്ഥാന ജൈവ വൈവിധ്യ കോൺഗ്രസ് തലശ്ശേരിയിൽ മുഖ്യ മന്ത്രി രാവിലെ ഉദ്ഘാടനം ചെയ്യും

എം ഓഫീസ് റെയ്ഡ് ചെയ്ത തിരുവനന്തപുരം ഡെപ്യൂട്ടി പൊലീസ് കമ്മീഷണറെ സ്ഥലം മാറ്റിയത് പൊലീസിന്റെ ആത്മവീര്യം തകർക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ത്യാ ന്യൂസിലാൻഡ് മൂന്നാം ഏകദിന ക്രിക്കറ്റ് മത്സരം നാളെ ദേശീയ ജൂനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ കേരളം കാർട്ടറിൽ കടന്നു

കൊച്ചിയിലും തൃശൂരും അദ്ദേഹത്തെ വരവേൽക്കാൻ ഒരുക്കങ്ങൾ പൂർത്തിയായി ഉച്ചയ്ക്ക് രണ്ടുമണിയോടെ കൊച്ചി നാവിക വിമാനത്താവള ത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്ടറിൽ രാജഗിരി കോളേജ് മൈതാനത്ത് ഇറങ്ങും കൊച്ചി എണ്ണ ശുദ്ധീകര ണശാലയിൽ ഇന്റഗ്രേറ്റഡ് റിഫൈനറി എക്സ്പാൻഷൻ സമു ച്ചയം അദ്ദേഹം നാടിന് സമർപ്പിക്കും

ഇതിനുപുറമെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേ ഷന്റെ മൌണ്ടഡ് ബുള്ളറ്റ് സ്റ്റോറേജും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും റിഫൈനറി ഏറ്റുമാനൂരിൽ തുടങ്ങുന്ന സ്കിൽ ഡവ ലപ്മെന്റ് കേന്ദ്രത്തിനും പ്രധാനമന്ത്രി തറക്കല്ലിടും തുടർന്ന് തൃശൂരിലേക്ക് പോകുന്ന പ്രധാനമന്ത്രി യുവ മോർച്ച സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ മഹാറാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്യും തിരിച്ച് കൊച്ചി നാവിക വിമാനത്താവളത്തിലെത്തി പ്രത്യേക വിമാനത്തിൽ ഡൽഹിക്ക് മടങ്ങും പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് കൊച്ചിയിലും തൃശൂരും സുരക്ഷ ശക്തമാക്കി ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ മധുരയിൽ എയിംസ് കേന്ദ്രത്തിന് തറക്ക ല്ലിട്ട ശേഷമാണ് പ്രധാനമന്ത്രി കൊച്ചിയിലെത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലെ മൻ കി ബാത് പരിപാടിയിൽ ഇന്ന് ജനങ്ങളുമായി ചിന്തകൾ പങ്കു വെയ്ക്കും

പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെയും വാർത്താ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെയും ആകാശ വാണിയുടെയും ദൂരദർശന്റെയും യൂ ട്യൂബ്പ് ചാനലുകളിലും മൻ കി ബാത് ഉണ്ടായിരിക്കും ആകാശ്വാണി വെബ്സൈ റ്റിലും തത്സമയം പരിപാടി കേൾക്കാം പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിനുശേഷം പ്രാദേശിക ഭാഷകളിൽ അതിന്റെ പരിഭാഷ പ്രക്ഷേപണം ചെയ്യും

ദൂരദർശൻ ന്യൂസിലും ദേശീയ ചാനലിലും ഡി

ആറാം ക്സാസ് മുതൽ ഹയർ സെക്കന്ററി വരെ ക്ലാസുകളിലെ കുട്ടി കൾ സംവാദത്തിൽ പങ്കെടുക്കും വിശ്വാസത്തെയും ആചാരത്തെയും മറയാക്കി സ്ഥാപിത താൽപര്യക്കാർ ഭരണഘടന അട്ടിമറിക്കാൻ ശ്രമിക്കുകയാ ന ണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി നവോ ത്ഥാനമൂലൃങ്ങൾ ഇല്ലാതെയാക്കാൻ ബോധപൂർവ്വമായ ശ്രമം സമൂഹത്തിൽ ഉണ്ടാകുന്നത് ഗൌരവമായി കാണണമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു കേരള നിയമ സഭയും സാക്ഷരതാ മിഷൻ അതോറിറ്റിയും പൊതുവിദ്യാ ഭ്യാസ വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച ഭരണഘടനാ സാക്ഷ രതാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി അടിസ്ഥാന സാക്ഷരത പോലെ അനിവാരൃമായ ഒന്നാണ് ഭരണഘടനാ സാക്ഷരതയും ഭരണഘടന സംരക്ഷിക്കണ മെന്ന ഉത്തരവാദിത്വബോധം ജനങ്ങളിൽ ഉയർത്താൻ ഇത്തരം ജനകീയ വിദ്യാഭ്യാസ പരിപാടികൾ സഹായിക്കു മെന്ന് പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു ഭരണഘടനയെ വെല്ലുവിളിക്കാൻ പ്രവണത് വർദ്ധിച്ചുവരുന്ന സാഹചര്യ ത്തിൽ പൌരാവകാശങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സമ്പൂർണ്ണ സാക്ഷരത ജനകീയാസൂത്രണം തുടങ്ങിയ ജനകീയ ഇടപെ ടലുകൾ വിജയിപ്പിച്ച സമൂഹമാണ് കേരളത്തിലേത് പാർശ്വ വൽക്കരിക്കപ്പെട്ടവർക്ക് ശരിയായ സ്വാതന്ത്രൃം അനുഭവി ക്കാൻ അവസരമൊരുക്കണം അതിനുവേണ്ടിയാണ് വനിതാ മതിൽ സംഘടിപ്പിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി

അമൃതാനന്ദമ യിയെ ആരാധിക്കുന്നവരും വിശ്വസിക്കുന്നവരും പോലും ആ വേദി പങ്കിടൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പ്രതി മാസ സംവാദ പരിപാടിയായ നാം മുന്നോട്ടിൽ പങ്കെടുക്കു കയായിരുന്നു മുഖ്യമന്ത്രി

കോഴിക്കോട് ജില്ലയിൽ ആഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാൻ മന്ത്രിമാരായ ടി പി രാമകൃഷ്ണൻ എ

ആലപ്പുഴയിൽ മന്ത്രി ജി

കാസർകോട്ട് മന്ത്രി ഇ ചന്ദ്രശേ ഖരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ സംസ്ഥാന ജൈവ വൈവിധ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി പിണ്റായി വിജയൻ രാവിലെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും

ബന്ധ പ്പെട്ട വിഷയങ്ങളിൽ സെമിനാർ പ്രബന്ധാവതരണം പ്രദർശനം എന്നിവ ഇതിന്റെ ഭാഗമായി തുടങ്ങിയിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനവും ജൈവ വൈവിധ്യത്തിന്റെ പുന രുജ്ജീവനവും എന്ന ആശയത്തോടെയാണ് പരിപാടി സംഘ ടിപ്പിക്കുന്നത്

ഗുണ്ടകളെയും സാമൂഹ്യ വിരു ദ്ധരെയും സംരക്ഷിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നതിന്റെ പ്രകടമായ തെളിവാണ് ഇതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

വനിതാ ഡി

പിയ്ക്ക് എതിരെയുണ്ടായ നടപടിയെ വി ടി ബൽറാം എം എൽ

ഇന്ത്യാ ന്യൂസിലാൻഡ് മൂന്നാം ഏകദിന ക്രിക്കറ്റ് മത്സരം നാളെ ന്യൂസിലാൻഡിലെ മൌണ്ട് മോൻഗന്യയിൽ നടക്കും കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തോടെയാണ് ഇന്ത്യ മത്സരത്തിനിറങ്ങുന്നത് ഇന്നലെ രണ്ടാം ഏകദിനത്തിൽ ന്യൂസിലാൻഡിനെ റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്

കൊല്ലത്ത് ദേശീയ ജൂനിയർ വനിതാ ഹോക്കി ചാമ്പ്യൻഷി പ്പിൽ കേരളം കാർട്ടറിൽ ഇടം നേടി ഗുജറാത്ത് സ്പോർട്സ് അതോറിറ്റിയെ രണ്ടിനെതിരെ അഞ്ച് ഗോളിന് കീഴടക്കിയാണ് കേരളത്തിന്റെ കാർട്ടർ പ്രവേശം ആദ്യപകുതിയിൽ ആദ്യ ഗോൾ അടിച്ച കേരളം രണ്ടാം പകുതിയിലാണ് ആവേശകര മായ മത്സരം കാഴ്ചവെച്ചത് ഉൾനാടൻ മേഖലയിലെ മത്സ്യാല്പാദനം ഇപ്പോഴത്തേ തിന്റെ ഇരട്ടിയാക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ജെ

ആലപ്പുഴയിൽ ഫിഷ റീസ് വകുപ്പിന്റെ പ്രളയാനന്തര മത്സ്യകൃഷി പുനഃസ്ഥാപന പാക്കേജ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

മത്സ്യകൃഷിക്ക് പുതിയ സ്ഥലം കണ്ടെത്തി കൃഷിയിറക്കാൻ നാലുകോടി രൂപ ജില്ലയ്ക്ക് അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു എല്ലാ ജില്ലകളിലും ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ തുട ങ്ങാൻ ഗവൺമെന്റ് നടപടിയെടുത്തുവരികയാണെന്ന് മന്ത്രി ജി സുധാകരൻ ആലപ്പുഴയിൽ അറിയിച്ചു പല കാരണ ങ്ങൾകൊണ്ടും അനാഥരാകുന്ന കുട്ടികളെ പരിപാലിക്കാനും ദത്ത് നൽകാനും ഇതുവഴി കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ തണൽ അഭയകേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കോഴിക്കോട് ജില്ലയിൽ കലക്ടറേറ്റിൽ വരാതെ കല ക്ടർക്ക് പരാതികളും അപേക്ഷകളും ഓൺലൈനായി നൽകുന്ന ഇ ആപ്ലിക്കേഷൻ സംവിധാനം മന്ത്രി എ

സംസ്ഥാനത്ത് ആദ്യമാ യാണ് ഇത്തരമൊരു സംവിധാനം ആരംഭിക്കുന്നത് പരാതികളിലും അപേക്ഷകളിലും കാലതാമസമില്ലാതെ തീരുമാനമെടുക്കാൻ എല്ലാ ആഴ്ചയിലും ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ ഒപ്പം എന്ന പദ്ധതിയും ആവിഷ്കരിച്ചു

മൂന്നാറിൽ റെയിൻ ഇന്റർനാഷണൽ നേച്ചർ ഫിലിം ഫെസ്റ്റിവൽ ഇന്ന് സമാപിക്കും കന്നഡ സംവിധായകനും ജൂറി ചെയർമാനുമായ ഗിരീഷ് കാസറവള്ളി ഇന്നലെ ചട ങ്ങിൽ ദേശീയപതാക ഉയർത്തി സുരേഷ് ഇളമൺ സംവി ധാനം ചെയ്ത സൈലന്റ് വാലിയുടെ ചരിത്രം വിവരിക്കുന്ന കാനനം എന്ന ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു

എസ്

ടി സി നടത്തുന്നുണ്ട് ചേർത്തല എസ്

കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫ

സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം കൊല്ലത്ത് നട്ടക്കും